അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞ് കയറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമ്യന്തി

എക്സ്പ്രസ് പാളം തെറ്റി

മുംബൈ ഇന്ത്യൻസിനെയും ഡൽഹി ക്യാപിറ്റൽ കിംഗ്സ് ഇലവൻ പഞ്ചാബിനെയും നേരിടും

കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ

വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി തെരഞ്ഞെടുപ്പ് റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാൾ ബിഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ റാലികളിൽ ഇന്ന് പങ്കെടുക്കും ബിഹാറിലെ അറാറിയ മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം ജെ ഡി യു നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബിഹാർ ഛത്തിസ്ഗഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിക്കും സോപോർ മണ്ഡലത്തിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി പ്രസാദ് യാദവും ഹിന്ദുസ്ഥാനി ആവാം മോർച്ചു നേതാവ് ജിതിൻ റാം മാഞ്ചിയും കോൺഗ്രസ് അധ്യക്ഷനൊപ്പം വേദി പങ്കിടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫാറൂഖാബാദ് മൊറാദാബാദ് കനൌജ് എന്നിവിട്ടിട്ടുളിലെ പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിക്കും

സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദ്ധ് ബി എസ് പി നേതാവ് മായാവതി ആർ എൽ ഡി നേതാവ് അജിതസിംഗ് എന്നിവർ രാംപൂർ ഫിറോസാബാദ് എന്നിവിടങ്ങളിലെ റാലികളിൽ ഒരുമിച്ച് പങ്കെടുക്കും അതേസമയം ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ കർണാടകയിലെ ഷിമോഗയിലും കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങലിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും അതിനിടെ അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും ബീഹാർ രാജസ്ഥാൻ ജമ്മുകാശ്മീർ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കേരളത്തിൽ ഇന്ന് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്

പശ്ചിമബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അതിർത്തിയിലെ അദ്ദേഹം

പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

വിഷയത്തിൽ രണ്ട് ആഴ്ചക്കകം മറുപടി നല്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്

പ്രകടനപത്രികയിലെ ഇത്തരമൊരു വാഗ്ദാനം കൈക്കൂലിക്കു തുല്യമാണെന്നും ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം

ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇന്ന് തന്നെ ബട്ടിയ്ക്ക് കൈമാറാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി

പാർട്ടി അംഗങ്ങളുടെ അനുമതിയില്ലാതെ എൻ ഡി എ വിട്ട കൂശ്വാഹയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് ആർ എൽ എസ് പി ഘടകങ്ങളിലൊന്ന് നയിക്കുന്ന എം എൽ എ ലാലൻ പസ്വാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു പസ്വാൻ നയിക്കുന്ന ഘടകത്തിന് സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അനുമതി നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി

അടുത്ത അഞ്ച് വർഷം ജനങ്ങളുടെ സ്പപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ വേഗത്തിൽ പ്ര്വർത്തിക്കുമെന്നും ഒരു സ്വകാരൃ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുകയാണ്

കോൺഗ്രസ് നേതാക്കൾ കോടതി കുറ്റവാളികളെന്ന് കണ്ടെത്തിയിട്ടുള്ളവരുമായി ചർച്ച നടത്തുന്നുവെന്നും ശ്രീ മോദി കുറ്റപ്പെടുത്തി

ഹൌറയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുംവഴി രാത്രി ഒരു മണിയോടെയായിരുന്നു അപകടം നാട്ടുകാരും പോലീസും സംഭവസ്ഥലത്തെത്തി രക്ഷാ പ്രവർത്തനത്തിലേർപ്പെട്ടു റെയിൽവേ രക്ഷാപ്രവർത്തകരും ദേശീയ ദുരന്തനിവാരണസേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്

റെയിൽവേമന്ത്രി അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു റെയിൽവേ സുരക്ഷാ കമ്മീഷണർ എ കെ ജെയിൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും

ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സൈന്യം പട്രോളിംഗ് നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു തുടർന്നു സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത് ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടില്ല

പ്രദേശത്ത് സൈനൃം കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണ് പുൽവാമ ജില്ലയിലെ ട്രാൽ മേഖലയിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ തീവ്രവാദികൾ സിആർപിഎഫ് ക്യാമ്പ് ആക്രമിച്ചു

വൈകിയാൽ രക്ഷാപ്രവർത്തനങ്ങൾ സാധിക്കാത്ത അവസ്ഥയായേക്കുമെന്നും ശ്രീമതി സുഷമ ടിറ്ററിൽ അറിയിച്ചു

വൈകിട്ട് നാലു മണിക്ക് ജയ്പൂരിലാണ് മത്സരം

ഇന്നലെ നടന്ന സെമിയിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് പഞ്ചാബ് ഫൈനലിൽ എത്തിയത്

പുരുഷ വിഭാഗത്തിൽ യൂത്ത് ഒളിംമ്പിക് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവ് ജെറമി ലാൽറിനുങ്കയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ കോമൺ വെൽത്ത് ഗെയിംസ് ചാമ്പ്യനും ഇന്ത്യൻ താരവുമായ സതീഷ് ശിവലിങ്കം പക്ഷെ മോശം പ്രകടനം കാരണം മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല

ക്വാട്ട വർദ്ധിച്ചതോടെ ഉത്തർപ്രദേശ് പ്പശ്ചിമ്ബംഗാൾ ആന്ധ്രാപ്രദേശ് ബീഹാർ തുടങ്ങിയ വലിയ സ്ഠിസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കൂടുതൽ തീർത്ഥാടകർക്ക് ഈ വർഷ്ടം ഹജ്ജ് യാത്ര നടത്താം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്പ്രദ്ദി കിരീടാവകാശി മെഹമ്മദ് ബിൻ സൽമാൻ ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യാക്കാരുടെ ഹജ്ജ് കാട്ട് രണ്ട് ലക്ഷമായി ഉയർത്തുമെന്ന് അറിയിച്ചിരുന്നു